ഇന്ന്

ന്യൂനമർദമായി മാറിയതായി ്കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്

നിലനിർത്തുന്നതിന്റ് ന്യതന്ത്ര സൈനിക വിഷയങ്ങളിൽ ആശയവിനിമയം തുടരണമെന്ന് കേന്ദ്രം

ഇരു സഭകളുടെയും അദ്ധ്യക്ഷൻമാരെയും വെർചല് കൂടിക്കാഴ്ചയിൽ ക്ഷണിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ്സിംഗ് ഹർഷ് വർദ്ധൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും പ്രധാനമന്ത്രി കോവിഡ് വാക്ട്സിൻ നിർമാണ പുരോഗതി വിലയിരുത്താൻ സന്ദർശനം നോത്തീയ്ക്തിന് പിന്നാലെ നടത്തുന്ന സർവകകഷിയോഗമാണിത്

പ്രശ്നബാധിതമേഖലകളിലും നിയന്ത്രണ രേഖയിലൂടക്കം പൂർണമായും ശാന്തിയും സമാധാനവും തിരികെക്കൊണ്ടുവരാൻ ഇത് അനിവാര്യമാണെന്നും വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ വൃക്തമാക്കി

വേണ്ട സമയത്ത് ഇരുഭാഗത്തുനിന്നും മുതിർന്ന പ്രതിനിധികളുടെ യോഗം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്രസിങ്ങ് തോമർ വാണിജ്യ മന്ത്രി പീയുഷ് ഗോയൽ എന്നിവരാണ് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത് അതേസമയം സർക്കാർ കർഷക്രൂടെ പ്രശ്നങ്ങളെല്ലാം പരിഗണിക്കാനും ചർച്ചയ്ക്കെടുക്കാൻ തൃയ്യാറ്റാണെന്ന് ചർച്ചയ്ക്ക്ശേഷം ശ്രീ

മറ്റന്നാൾ ഉച്ചയ്ക്ക വീണ്ടും ചർച്ച തുടരും

രാജേന്ദ്രപ്രസാദ് സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം പുതിയ വിദ്യാഭ്യാസ നയം യുവജനങ്ങളെ വിമർശനാത്മകമായി ചിന്തിക്കാൻ പ്രാപ്തരാക്കുമെന്നും ആകാശവാണി സംഘടിപ്പിച്ച ചടങ്ങിൽ ശ്രീ ജാവദേക്കർ പറഞ്ഞു

ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെട്ട ജില്ലകൾക്ക് കേരളവും തമിഴ്നാടും ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചു

തമിഴ്നാടിന്റെ തെക്കൻജില്ലകളിലുൾപ്പെടെ ചില സ്ഥലങ്ങളിൽ കനത്തമഴ പെയ്തു തമിഴ്നാട്ടിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്

ന്യൂസ് ഡസ്ക് ആകാശവാണി

രാവിലെ ഏഴു മണി മുതൽ രണ്ടു വരെയാണ് വോട്ടിംഗ്

പാകിസ്താൻ ഹൈക്കമ്മീഷണർ ഇമ്രാൻ അഹമ്മദ് സിദ്ദിഖിയുമായി ഔദ്യോഗികവസതിയിൽവെച്ച് നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി അഭിപ്രായം പങ്കുവെച്ചത്

നിയമം അടിയന്തിരമായി പ്രാബലൃത്തിൽ വരുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്ലക്താവ് അറിയിച്ചു

പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് നടത്തിയ പ്രവർത്തനങ്ങളുടെ മികവിനാണ് അംഗീകാരം

മൂന്നു മത്സരങ്ങളുള്ള പരമ്പരയിൽ ഓസ്ട്രേലിയൻ ടീമിനെ ആരോൺ ഫിഞ്ചും ഇന്ത്യൻ ടീമിനെ വിരാട് കോലിയും നയിക്കും

സി ബംഗളൂരു എഫ്

ഇന്നലെ നടന്ന മത്സരത്തിൽ ഒഡീഷയെ എതിരില്ലാ്ത്ത് ഒരു ഗോളിന് കീഴടക്കി മോഹൻ ബഗാൻ വിജയിച്ചു

വിജയത്തോടെ ് മൂന്ന് മത്സരങ്ങളിൽ നിന്നും ഒൻപത് പോയിന്റുകളുമായി മ്മോഹ്ൻ ബഗാൻ പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി